രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ണീരോടെ വിട ബി ജെ

പുൽവാമ ആക്രമണത്തിന് ഭീകര സംഘടനകൾക്ക് ഇസ്താമാബാദ് നൽകിയ സഹായത്തെക്കു്രിച്ച്ഇന്ത്യ അറബ് രാഷ്ട്രങ്ങളുടെ ദൌത്യതലവന്മാർക്ക് വിവ്വരങ്ങൾ നൽകി

ബീഹാർ ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും

ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ഖാത്തിമ എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ട് ജവാന്മാരുടെ ഭൌതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു പഞ്ചാബിൽ നിന്നുള്ള നാല് സി

എഫ് ജവാന്മാരാണ് ആക്രമണത്തിൽ വീരമൃത്യുവരിച്ചത്

ബീഹാറിൽ നിന്നുള്ള രണ്ട് ജവാന്മാരുടെ ഭൌതിക ശരീരം ഗംഗാ നദിയുടെ തീരത്ത് ഫതുഹ കഹലഗോൺ എന്നിവിടങ്ങളിൽ സംസ്കരിച്ചു ഝാർഖണ്ഡിൽ നിന്നുള്ള ജവാന്റെ സംസ്കാര ചടങ്ങിൽ ഝാർഖണ്ഡ് ഗവർണർ ദ്രൌപതി മുർമു മുഖ്യമന്ത്രി രഘുബാർ ദാസ് തുടങ്ങിയവർ പങ്കെടുത്തു

കേരളത്തിലെ വയനാട് സ്വദേശിയായ വി

വസന്തകുമാറിന്റെ സംസ്കാര ചടങ്ങിൽ കേന്ദ്രമന്ത്രി കെ

തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് ജവാന്മാരുടെ സംസ്കാര ചടങ്ങുകളിൽ കേന്ദ്ര മന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ പൊൻ രാധാകൃഷണൻ തുടങ്ങിയവർ പങ്കെടുത്തു പൂർണ്ണ ഔദ്യോഗിക ബഹുമതികോടെ ആയിരങ്ങളുടെ സാന്നിദ്ധ്യത്തിലാണ് തമിഴ്നാട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടന്നത്

ജെ

പാർട്ടിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികൾ ഭാരവാഹികൾ തടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിലെ യോഗങ്ങളിൽ പങ്കെടുക്കും ജില്ലാ ആസ്ഥാനങ്ങളിൽ നടക്കുന്ന അനുശോചന യോഗങ്ങളിൽ പങ്കെടുക്കുന്ന പാർട്ടി പ്രവർത്തകർ ഭീകരതക്കെതിരെ പ്രതിജ്ഞ എടുക്കുമെന്ന് ബി ജെ

മാധ്യമ വിഭാഗം തലവൻ അനിൽ ബലൂനി എം

അറിയിച്ചു

വിവിധ അറബ് രാജ്യങ്ങളിലെ അംബാസിഡർമാർ യോഗത്തിൽ പങ്കെടുത്തതായി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു

കൂടാതെ ഇന്ത്യയിലെ പാക് ഹൈക്കമ്മിഷണർ സൊഹേയ്ൽ മഹ്മ്മൂദ്യിന്നു വിളിച്ച് വരുത്തിയാണ് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത്

പാകിസ്ഥാന് ഇന്ത്യ നൽകിയിരുന്ന ഏറ്റവും അഭിമത രാഷ്ട്രമെന്ന പദവി വെള്ളിയാഴ്ച പിൻവലിച്ചതിന് പിന്നാലെയാണ് നടപടി പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വ്യാപാര രംഗത്ത് ഏറ്റവും അഭിമത രാഷ്ട്രമെന്ന് പാകിസ്ഥാന് നൽകിയിട്ടുള്ള പദവി പിൻവലിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിച്ചതോടെ പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി ഗണ്യമായി കുറയുമെന്ന് ധനമന്ത്രി അരുൺ ജയ്റ്റ്ലി ട്വീറ്ററിൽ കുറിച്ചു

പഴവർഗങ്ങൾ സിമെന്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ചില ധാതു ലവണങ്ങൾ തുകൽ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള പ്രധാന ഇറക്കുമതി

പ്പൊതൂർസ്വകാര്യ പങ്കാളിത്തതോടെ പദ്ധതി നടപ്പിലാക്കാനാണ് ഏയർപ്പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ലേലത്തിനായി അപേക്ഷ ക്ഷണിച്ചത്

മൻകി ബാതിൽ പങ്കുവയ്ക്കേണ്ട ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെ അറയിക്കുവാൻ പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

ഉലാവിൽ പൊതുസമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും പറ്റ്ന മെട്രോ റെയിൽ പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും

പ്രദിപ് ഹൽദിയാ ദുർഗാപൂർ പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതിയുടെ വികസനപ്രവർത്തനങ്ങളും വീഡിയോ കോൺഫറൻസിങിലൂടെ ഉദ്ഘാടനം ചെയ്യും

നിർമ്മൽ ഗംഗാ പദ്ധതിയുടെ ഭാഗ്രമായുള്ള ബീഹാറിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

ഉളാവ്യോ വിമാനത്താവള വളപ്പിൽ നടക്കുന്ന പൊതു സമ്മേളനത്തേയു് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും തുടർന്ന് ഝാർഖണ്ഡിലെ റാഞ്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി അവിടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവ്വഹിക്കും

ആഗ്രയിൽ നിന്നും ഇന്ന് വൈകിട്ട് ന്യൂഡൽഹിയിൽ എത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളും വിവിധ മേഖലകളിലെ സഹകരണവും ചർച്ചാവിഷയമാകും ചർച്ചകൾക്കുശേഷം ഇരുരാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകൾ ഒപ്പുവയ്ക്കും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായും മൌരീഷ്യോ ചർച്ചകൾ നടത്തും മൌരീഷ്യൻ പ്രസിഡന്റിനോടുള്ള ആദര സൂചകമായി രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക വിരുന്നും ഏർപ്പെടുത്തിയിട്ടുണ്ട്

ഇന്ദിരാഗാന്ധി അന്തർദേശ്വീയി പിമാനത്താവളത്തിൽ വച്ച് ഇന്നലെയാണ് ക്രൈംബ്രാഞ്ച് ഹ്ലോട്ട്ൽ ഉടമ രാകേഷ് ഗോയലിനെ അറസ്റ്റ് ചെയ്തത്

ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും

ക്വാർട്ടറിൽ ഉസ്ബക്കിസ്ഥാൻ താരവും ഉക്റൈൻ താരവുമാണ് ഇരുവരുടെയും എതിരാളികൾ

പമ്പാ നദി മണപ്പുറത്ത് മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള കൺവെൻഷൻ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആരംഭിച്ചത് കഴിഞ്ഞ ഏഴ് ദിനങ്ങളിലായി നടന്ന വിവിധ സമ്മേളനങ്ങളിൽ സുവിശേഷ പ്രസ്സംഗകർ വചനഘോഷണം നടത്തി

പൊക്രാനിലെ പാകിസ്ഥാൻ അതിർത്തിക്കടുത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു വ്യോമശക്തി എന്ന പേരിലുള്ള അഭ്യാസപ്രകടനം അരങ്ങേറിയത്

ഏത് പ്രത്യാക്രമണത്തിനും ഇന്ത്യൻ കൂടിവ്യോമസേന തയ്യാറാണെന്ന് വ്യോമസേന മേധാവി ബി

്ധനോവ പറഞ്ഞു